വായുമലിനീകരണം തടയാൻ ്ഹ്ഴിയാന ഗവൺമെന്റ് പുതിയ നടപടികൾ പ്രഖ്യാപിച്ചു

രണ്ടു ദിവസത്തെ അന്താരാഷ്ട്ര നാളികേര സമ്മേളനത്തിന് ന് കേരളത്തിലെ കോഴിക്കോട്ട് ഇന്ന് തുടക്കമാകും

ഇന്തൃയ്ക്ക് ജയം

നരേന്ദ്രമോദി ബാങ്കോക്ക് സന്ദർശിക്കുന്നതെന്ന് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിജയ് താക്കൂർ സിങ്ങ് ന്യൂഡൽഹിയിൽ പറഞ്ഞു ആസിയാൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക പരസ്പര സാമ്പത്തിക സഹകരണം സൈബർ സുരക്ഷാ രംഗത്തെ സഹകരണം എന്നിവ മെച്ചപ്പെടുത്തുക തുടങ്ങിയവയാണ് ഇത്തവണത്തെ ആസിയാൻ ഉച്ചകോടിയുടെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ മേഖലാ സമഗ്ര പങ്കാളിത്ത രാഷ്ട്ര ഗ്രൂപ്പിൽ ആണ്ഡിയാൻ സംഘടനയിലെ പത്ത് രാഷ്ട്രങ്ങളാണ് അംഗങ്ങൾ

ആസിയാനുമായി ബന്ധപ്പെട്ട ഉച്ചകോടികൾ ഇന്ത്യൂഷ്ട് ന്യതന്ത്രത്തിന്റെ സുപ്രധാന ഭാഗമാണെന്ന് തായ്ലന്റിലെ ഇന്ത്യൻ സ്ഥാന്റ്പ്തി സുചിത്ര ദുരൈ പറഞ്ഞു

ശാസ്ത്രി സ്ട്രീറ്റിലെ പ്രതിമയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി

പ്രതിസന്ധി സമയത്ത് രാജ്യത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകിയ പ്രധാനമന്ത്രിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രിയെന്ന് ശ്രീ

ബദൽമാർഗ്ഗങ്ങൾ തെരഞ്ഞെടുക്കാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി

അന്തരീക്ഷ മലിനീകരണം ്പൂർദ്ധീച്ചതായി ജില്ലാ മജിസ്ട്രേട്ടുമാരുടെയും ഡിവിഷണൽ കമ്മീഷണർമാര്ുടെയും യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു കാർഷികാവശിഷ്ടങ്ങൾ കത്തിക്കുന്നതുമൂലമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെപ്പറ്റി കർഷകരെ ബോധവൽക്കരിക്കാൻ കൃഷി വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഇതനുസരിച്ച് ഓഫീസുകളുടെ പ്രവർത്തന സമയവും ക്രമീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ഓഫീസിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് രണ്ട് സമയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്

പ്രതിവർഷം ഒന്നര ലക്ഷം പേരുടെ ജീവനാണ് മോട്ടോർ വാഹനാപകടത്തിൽ നഷ്ടമാകുന്നതെന്ന് ശ്രീ

മുംബൈയിൽ പൊതുപരിപാടി യിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോട്ടോർ വാഹന നിയമം സംയുക്ത പട്ടികയിലാണ് ഉള്ളത് ഗതാഗത നിയമലംഘനങ്ങളുടെ പിഴ സംസ്ഥാനങ്ങൾക്ക് നിശ്ചയിക്കാമെന്നും ശ്രീ ഗഡ്കരി അറിയിച്ചു

യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം

കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെയും യു എസ് ട്രഷറി സെക്രട്ടറി സ്റ്റീവൻ നൂച്ചിന്റെയും സംയുക്ത അദ്ധ്യക്ഷതയിലായിരുന്നു യോഗം പരസ്പര സഹകരണം വർദ്ധിപ്പിക്കാനുള്ള നിരവധി നിർദ്ദേശങ്ങൾ യോഗം ചർച്ച ചെയ്തതായി ശ്രീമതി

പണം തട്ടിപ്പുകൾ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പണമിടപാടുകൾ തടയുന്ന കാര്യങ്ങളും ചർച്ചാ വിഷയമായി വളർച്ച പരിപോഷിപ്പിക്കുന്നതിനുള്ള നയപരിപാടികളും നിക്ഷേപ സാധ്യതകളും അവലോകനം ചെയ്തതായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു

രാജ്യത്തിന്റെ വർധിച്ചുവരുന്ന ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ എടുക്കണമെന്നും ജോഷി നിർദ്ദേശിച്ചു

അന്താരാഷ്ട്ര നാളികേര സമ്മേളനവും പ്രദർശനവും രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിന് വിദേശരാജ്യങ്ങൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ കർഷകർക്കും ചെറുകിട ഇടത്തരം സംരംഭകർക്കും മനസ്സിലാക്കാൻ രണ്ടു ദിവസത്തെ സമ്മേളനം അവസരമൊരുക്കും ഉൽപ്പാദനത്തിനും വിപണനത്തിനും ഊന്നൽ നിൽകുന്ന പുതിയ പദ്ധതികൾക്ക് സമ്മേളനം രൂപം നൽകും

മികച്ച മൂന്ന് ടീമുകൾക്ക് ഒരു ല്ക്ഷംരൂപ വരുന്ന സമ്മാനങ്ങളുണ്ട് തായ്ലന്റ് ഫിലിപ്പൈൻസ് ഇന്ത്രേനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ രംഗത്തെ പ്രമുഖരുമായിട്ട്സ്ംവദിക്കാൻ വേദിയൊരുക്കും

എസ്

സി സംസ്മാന ആസൂത്രണ ബോർഡ് നാളികേര വികസന ബോർഡ് എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്

എച്ച്

ഇതു ണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇതു സംബന്ധിച്ച വിശദീകരണം തേടുന്നതെന്ന് ജസ്റ്റിസ് ശ്രീ

മനുഷ്യാവകാശ സംരക്ഷണത്തിനായി കേരളാ ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ സംതൃപ്തിയുണ്ടെന്ന് ജസ്റ്റിസ് ശ്രീ ദത്തു പറഞ്ഞു

ഐ പ്രതിനിധി സംഘം മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട കേരളത്തിലെ അട്ടപ്പാടി വനമേഖല സന്ദർശിച്ചു ഏറ്റുമുട്ടലിന്റെ മറവിൽ ് മാവോയിസ്റ്റുകളെ വെടിവച്ചു കൊല്ലുകയായിരുന്നുവെന്നാണ് ബോധ്യപ്പെട്ടതെന്നും വിശദ റിപ്പോർട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് നൽകുമെന്നും സംഘം പറഞ്ഞു

ജെ

രാവിലെ സമാപന സമ്മേളനം ശ്രീ

രാജഗോപാൽ എം

രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിലെ സൈനിക കേന്ദ്രങ്ങളിലായിരുന്നു ആക്രമണം അന്വേഷണം തുടരുന്നതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു

മൻദീപ് സിങ്ങിന്റെ പിന്തുണയോടെ ഹർമൻ പ്രീത് സിങ്ങും സുനിലും നേടിയ ഗോളുകളാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത് റഷ്യയ്ക്ക് വേണ്ടി ആന്ധ്രെ കുറേവ സേവൻ മാത്സോവിസ്കി എന്നിവർ ഓരോ ഗോളുകൾ വീതം നേടി ഇന്ത്യൻ ക്യാപ്റ്റൻ മൻദീപ് സിങ്ങാണ് മാൻ ഓഫ് ദി മാച്ച്

എസ് ആർ ഒയും ഐ ഐ

യും സഹകരിച്ചാണ് സെൽ സ്ഥാപിക്കുക